കോവിഡ് മഹാമാരി സൃഷ്ടിച്ച ഭീതിയുടേയും ഒറ്റപ്പെടലിന്റേയും സാമ്പത്തിക പ്രശ്നങ്ങളുടേയും കെട്ടുപാടുകളിൽ നിന്ന് മോചനം സ്വപ്നം കാണുന്ന ലോകജനതയോടൊപ്പം മലയാളികളും പുതുവർഷത്തെ സ്വാഗതം ചെയ്തു

രാത്രി പത്തു മണിയോടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു നിർദേശം എങ്കിലും പടക്കം പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചും വീടുകളിൽ പുതുവർഷത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തു രും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു പ്രമുഖരും ജനങ്ങൾക്ക് പുതുവർഷാശംസകൾ നേർന്നു ഓരോ വർഷവും പുതിയൊരു തുടക്കത്തിന് അവസരം നൽകുന്ന വേളകളാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ സാഹചര്യം നേരിടാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ട അവസരമാണ് ഇതെന്നും രാഷ്ട്രപതി പറഞ്ഞു

വെങ്കയ്യ നായിഡു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു വിനാശം വിതച്ച മഹാവ്യാധിയുടെ കടന്നാക്രമണത്തിൽ ഒട്ടേറെ പാഠങ്ങൾ പഠിപ്പിച്ച വർഷമാണ് കടന്നു പോകുന്നതെന്നും വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ പ്രതീക്ഷയാണ് ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നതെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു

തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വീട് നിർമ്മാണത്തിൽ ബദൽ സാങ്കേതിക വിദ്യകളും നിർമ്മാണ സാമഗ്രികളും ഉപയോഗിക്കുന്ന പദ്ധതിയിൽ തികച്ചും പ്രകൃതി സൌഹൃദപരമായ വീടുകളായിരിക്കും നിർമ്മിക്കുന്നത്

രംഭ കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കാൻ നാളെ രാജ്യവ്യാപകമായി ഡ്രൈറൺ റിഹേഴ്സൽ നടത്തും ഓരോ സംസ്ഥാന തലസ്ഥാനത്തെയും മൂന്ന് വിതരണ കേന്ദ്രങ്ങളിലെങ്കിലും പരീക്ഷണം നടത്താനാണ് കേന്ദ്ര നിർദ്ദേശം

കേരളത്തിലും മഹാരാഷ്ട്രയിലും തലസ്ഥാന ജില്ലയ്ക്ക് പുറത്തെ നഗരങ്ങളിലായിരിക്കും ഡ്രൈറൺ നടത്തുകയെന്ന് കേന്ദ്രം അറിയിച്ചു

വാക്സിനുകൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ആവശ്യമായ അതിശീതീകരണ സംവിധാനം രാജ്യവ്യാപകമായി സജ്ജമാക്കിയതായും മന്ത്രാലയം അറിയിച്ചു

നേരത്തെ ഇന്നു മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കാനായിരുന്നു തീരുമാനം

ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ഓൺലൈൻ പ്ലാറ്റ് ഫോമിലായിരുന്നു അധ്യയനം ഓരോ ക്സാസിലും പകുതി കുട്ടികളെ മാത്രമേ ഇപ്പോൾ അനുവദിക്കൂ ആദ്യത്തെ ഒരാഴ്ച ഒരു ബെഞ്ചിൽ ഒരു വിദ്യാർഥി എന്ന നിലയിൽ ക്ലാസുകൾ ക്രമീകരിക്കും

രക്ഷിതാക്കളുടെ സമ്മതപത്രത്തോടെ മാത്രമായിരിക്കും വിദ്യാർഥികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് സ്കൂളുകളിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഡിജിറ്റൽ തെർമോ മീറ്റർ സാനിറ്റൈസർ സോപ്പ് എന്നിവ ലഭ്യമാക്കണം സാമൂഹിക അകലം കൃത്യമായി പാലിക്കാനും ഇതു നിരീക്ഷിക്കാൻ കോവിഡ് സെല്ലുകൾ രൂപീകരിക്കാനും പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ നിർദേശം നൽകിയിട്ടുണ്ട്

കോവിഡ് മൂലമുണ്ടായ അസാധാരണ സാഹചര്യം നേരിടാൻ അധ്യാപകരുടേയും രക്ഷിതാക്കളുടേയും ഭാഗത്ത് നിന്ന് വിദ്യാർഥികൾക്ക് നൽകിയ പിന്തുണയേയും സഹായത്തേയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു രംഭ പൊലീസിലെ ഉന്നത പദവികളിൽ മാറ്റം വരുത്തി

ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ച് മേധാവിയാക്കി

ഏതാനും ജില്ലകളിൽ പുതിയ ജില്ലാ പൊലീസ് മേധാവിമാരെയും നിയമിച്ചു രും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടുതൽ സേവനങ്ങൾ ഇന്നു മുതൽ ഓൺലൈനിലേക്ക് മാറും

ലൈസൻസ് പുതുക്കൽ മേൽവിലാസം മാറ്റൽ ഡ്യൂപ്ലിക്കേറ്റെടുക്കൽ അധികഇനം കൂട്ടിച്ചേർക്കൽ എന്നീ സർടിഫിക്കറ്റുകൾക്ക് രേഖകൾ സ്കാൻ ചെയ്ത് ഓൺലൈനിൽ അപേക്ഷ നൽകാമെന്ന് മന്ത്രി എ കെ ശ്രീന്ദ്രൻ തിരുവനന്തപുരത്ത് അറിയിച്ചു വ്യക്തതയും സംശയകരമായ സാഹചര്യവും ഇല്ലെങ്കിൽ ഇനി മുതൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് നേരിട്ട് ഹാജരാകേണ്ടതില്ല

ചെങ്ങന്നൂരിൽ മിനി വൈദ്യുത ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വൈദ്യുതി ഉപഭോഗം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ സൌരോർജ്ജമടക്കം സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടെന്നും ജനപങ്കാളിത്തത്തോടെയേ അത് നടപ്പാക്കാൻ ആവൂ എന്നും മന്ത്രി പറഞ്ഞു

രോഗബാധയെ തുടർന്ന് ആരോഗ്യ വകുപ്പ് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു രംഭ കാഴ്ചാ പരിമിതർക്ക് ബ്രെയിൽ കലണ്ടർ വിതരണത്തിന് രാവിലെ തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിദ്യാലയത്തിൽ തുടക്കം കുറിക്കും

പ്രഥമ അധ്യാപകൻ കെ എം അബ്ദുൽ ഹക്കീം വിതരണം ഉദ്ഘാടനം ചെയ്യും രുര നിലമ്പൂരിൽ വന്യമൃഗശല്യത്തിന് മാങ്കുളം മോഡൽ പ്രതിരോധ പദ്ധതി നടപ്പാക്കാൻ തീരുമാനമായി

ഇതിന് പുറമെ ആറ് കോടി രൂപയുടെ വന്യമൃഗ പ്രതിരോധ പദ്ധതിയ്ക്കും അംഗീകാരമായിട്ടുണ്ട് രുര കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുകര മെയിൻ കനാലിലൂടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേനൽകാല ജല വിതരണം ഇന്ന് ആരംഭിക്കും